സംസ്ഥാനത്തെ നഗര പ്രദേശങ്ങളിലെ തെരുവോര കച്ചവട ക്കാരെ സംരക്ഷിക്കുന്നതിന് തയാറാക്കിയ പദ്ധതി വിജ്ഞാപനം ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് കോളജുകളിലും നാക് അക്രഡിറ്റേഷൻ ഉറപ്പ് വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ

ഇന്ന് ലോക റേഡിയോ ദിനം

ൾ ൽ ൾ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും ഈ ഗവൺമെന്റിന്റെ അവസാന ലോക്സഭാ സമ്മേളനത്തിനാണ് ഇന്ന് സമാപനമാകുന്നത് അതേസമയം രാജ്യസഭാ സമ്മേളനം ഏതാനും ദിവസത്തേക്ക് കൂടി നീട്ടിയേക്കും സുപ്രധാന സഭാ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണിത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയും ബജറ്റ് നടപടികളും രാജ്യസഭയിൽ പൂർത്തിയാക്കാനായിട്ടില്ല റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ലോക്സഭയിൽ വെച്ചേക്കും റിപ്പോർട്ടിന് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകിയിരുന്നു റഫ്ലേലിനെ ചൊല്ലി പാർലിമെന്റിന്റെ ഇരുസഭകളും ഇന്നലെയും തടസ്സപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ നഗര പ്രദേശങ്ങളിലെ തെരുവോര കച്ചവടക്കാ രെ സംരക്ഷിക്കുന്നതിനും തെരുവോര കച്ചവടം നിയന്ത്രിക്കുന്നതിനും തയാറാക്കിയ പദ്ധതി വിജ്ഞാപനം ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരു മാനിച്ചു

തെരുവോര കച്ചവട ക്കാരുടെ ജീവനോപാധി ഉറപ്പാക്കുകയും കച്ചവടത്തിന് സംരക്ഷണം നൽകുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇവരുടെ ക്ഷേമ ത്തിനുള്ള വിവിധ നടപടികൾ ഇതിന്റെ ഭാഗമായി സ്വീകരിക്കും

എറണാകുളം ജില്ലയിലെ കുന്നത്ത്നാട് താലൂക്കിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊലപ്പെടുത്തിയ നിമിഷ തമ്പിയെന്ന കുട്ടി യുടെ കുടുംബത്തിനും കൊച്ചിയിൽ ജോലി ചെയ്യുന്നതിനിടെ ഭൂഗർഭ കേബിളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച തമിഴ്നാട് സ്വദേശി മുതിരുലാണ്ടിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വീതം അനുവദിക്കാനും മന്ത്രി സഭാ യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് കോളജുകളിലും ഉന്നത ഗുണനിലവാര മാനദണ്ഡമായ നാക് അക്രഡിറ്റേഷൻ ഉറപ്പുവരുത്തു മെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഗവൺമെൻ് എയിഡഡ് സ്വയംഭരണ കോളജുകൾക്കുള്ള റൂസ ഫണ്ട് വിതരണോദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവ്വഹിക്കുകയാ യിരുന്നു മുഖ്യമന്ത്രി മത്സ്യബന്ധന യാനങ്ങളുടെ സംരക്ഷണത്തിന് ഇൻഷുറൻസ് പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുമെന്നും അതിനായി ഒരു കോടി രൂപ യുടെ ഭരണാനുമതി നൽകിയതായും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇൻഷൂറൻസ് ഏർപ്പെടുത്തു ന്നതിനോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ആവശ്യമായ ആധുനിക സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കി വരികയാണ്

സാറ്റലൈറ്റ് ഫോൺ നൽകു ന്നതിന് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു നിയമസഭാ ചേംബറിൽ തൊഴിലാളി സംഘടനാ നേതാക്കളുടെ യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി സൌദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ചൊവ്വാഴ്ച ഇന്ത്യയിലെത്തും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഊർജ പ്രതിരോധ വ്യാപാര സുരക്ഷാ മേഖലകളിലെ സഹകരണം ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു

സൌദി മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും വൻകിട വ്യാപാരികളും അദ്ദേഹത്തെ അനുഗമിക്കും കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ റാലി ഇന്ന് ഡൽഹിയിൽ നടക്കും ജന്തർ മന്തറിൽ നടക്കുന്ന റാലിയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജരിവാൾ തുടങ്ങിയവർ പങ്കെടുക്കും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഒരു എം

എ ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി സിബിഐ കുറ്റപത്രം നൽകിയ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ആകില്ലെന്ന് പറയുന്നത് പ്രതിഷേധാർഹ മാണെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ജനമഹായാത്രക്കു പാലക്കാട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നൽകിയ സ്വീകരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അക്രമരാഷ്ട്രീയം കൈവിട്ടില്ലെങ്കിൽ സി

എം കേരളത്തിൽ ഇല്ലാതാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൽ കോണ്ഗ്രസ് നയിക്കുന്ന ഗവർണമെന്റ് അധികാരത്തിൽ എത്തണമെന്നാണ് ലോകരാപ്രഷ്ടങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജനമഹായാത്രയുടെ പാലക്കാട് ജില്ലയിലെ പര്യടനം വടക്കാഞ്ചേരിയിൽ സമാപിച്ചു ജാഥ ഇന്ന് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പെയുടെ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് രാഷ്ട്ര പതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു

വാജ്പെയുടെ പൂർണകായ ഛായാചിത്രം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി

രാജ്യത്തെ ഏറ്റവും പഴക്കംചെന്ന പാർട്ടി ഇപ്പോൾ ചിലരുടെ കുടുംബകാരൃമായി മാറിയിരിക്കുകയാണെന്നും പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങൾക്ക് പോലും കുടുംബാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ലെന്നും ജെയ്റ്റലി ട്വിറ്ററിൽ കുറിച്ചു

പത്മനാഭൻ പറഞ്ഞു ശബരിമല പ്രശ്നത്തിൽ ഭക്ത രുടെ മനസിന് മുറിവേൽപ്പിച്ച ഗവൺമെന്റാണ് പിണറായിയു ടേതെന്നും മുഖ്യമന്ത്രിയെ ഉപദേശികൾ വഴിതെറ്റിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്റെ കുടുംബം ബിജെപി കുടുംബം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവ്വഹി ക്കുകയായിരുന്നു സി

പത്മനാഭൻ ഡൽഹി കരോൾബാഗിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മൂന്ന് മലയാളികളുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും രാവിലെ എട്ടരയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹം പിന്നീട് എറണാകുളം ചേരാനല്ലൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും എറണാകളും ചേരാനല്ലൂർ സ്വദേശി നളിനിയമ്മ മകൻ വിദ്യാസാഗർ ചോറ്റാനിക്കർ സ്വദേശി ജയശ്രീ എന്നിവരാണ് മരിച്ച മലയാളികൾ

ഇന്ന് ലോക റേഡിയോ ദിനം

സംവാദം സഹിഷ്ണുത സമാധാനം എന്നിവയാണ് ഈ വർഷത്തെ റേഡിയോ ദിനാചരണത്തിന്റെ പ്രമേയം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന മാധ്യമമാണ് റേഡിയോ

ഇന്നലെ രാത്രി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയെ കാപ്പുകെട്ടി കൂടിയിരുത്തിയതോ ടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഇതോടൊപ്പം വിശേഷാൽ പൂജയും നടന്നു

പൊങ്കാലയോടനുബന്ധിച്ച സാംസ്കാരിക പരിപാടികൾക്കും ഇന്ന് തുടക്കമാകും സംസ്കാരിക പരിപാടി നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാ ക്രമീ കരണങ്ങളും ഉറപ്പാക്കുന്നതിൽ വിവിധ വകുപ്പുകൾ ജാഗ്രത പുലർത്ത ണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു

മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കുളിക്കാനും മറ്റും മൊബൈൽ ബാത്ത്റൂമുകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്ന് ആറ്റുകാൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊങ്കാല അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി നിർദേശിച്ചു കുംഭ മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു പുലർച്ചെ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ പുജ കൾക്ക് തുടക്കമായി വിശേഷാൽ പുജകളായി ഉദ്യാസ്തമനപൂജ സഹസ്രകലശാഭിഷേകം കളഭാഭിഷേകം പടിപൂജ തുടങ്ങിയവയും ഇന്നുണ്ടായിരിക്കും സന്നിധാനത്ത് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് ശബരിമലയിൽ യുവതികളെ വിലക്കി ആചാരം നിലനിർത്താൻ കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് ഇറക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു യുവതി പ്രവേശന വിധിക്കെതിരെ പുനപരിശോധനാ ഹർജി നൽകിയത് കോൺഗ്രസ്സാണെന്നും ഇക്കാര്യത്തിൽ ബിജെപി ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പൃവസായിയായ ടി സി

തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത് ബിജു രാധാകൃഷ്ണൻ സരിത

നായർ എന്നിവരാണ് കേസിലെ പ്രതികൾ സാംസ് കാരിക വകുപ്പും സർവോദയ മണ്ഡലവും സംയുക്തമായി നടത്തുന്ന രക്തസാക്ഷ്യം പരിപാടിയുടെ ഭാഗമായി ഇന്ന് മലപ്പുറം തവനൂർ പാപ്പിനിക്കാട് മൈതാനിയിൽ സാഹിത്യ സമ്മേളനം നടക്കും ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിലിറ്റ് നൽകിയ ടി പത്മനാഭനെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം ഉണ്ടാകും

ഉച്ചക്കു ശേഷം വനിതാ സമ്മേളനം തൃശൂർ കലക്ടർ ടി

വൈകിട്ട് അഞ്ചിന് പ്രൊഫ

മഹാത്മജിയുടെ ചിതാഭസ്മ നിമജ്ജന സ്മരണയിലാണ് യാത്ര നടത്തിയത് തവനൂർ കേളപ്പജി സ്തൂപത്തിൽ പ്രാർഥനാസദസ്സും സമാധിയിൽ പുഷ്പാർച്ചനയും നടത്തി യാത്ര തിരുന്നാവായയിൽ സമാപിച്ചു പ്രമുഖ ഇസ്ലാം മത പണ്ഡിതനൂം സമസ്ത കേരള ജംഇയ്യത്തൂൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവുമായിരുന്ന എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വെണ്ണിയോട് കോഴിക്കോട്ട് നിര്യാതനായി